സർവതല സ്പർശിയായ വികസനത്തിന് മാത്രമേ സുസ്ഥിരത ഉണ്ടാകു

മധ്യപ്രദേശ് ത്രിപൂര ഉത്തർപ്രദേശ് ഗൂജറാത്ത് ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു ചിലവ് കുറഞ്ഞ സുസ്ഥിര ഭവന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ പ്രധാനമന്ത്രി് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന മികച്ച രീതിയിൽ നടപ്പാക്കിയവർക്കുള്ള സമ്മാനദാനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു നൂതന് നിർമ്മാണ സാങ്കേതികവിദ്യകളെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

ന്യൈ റണ്ണിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു

കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും നഗരങ്ങളിലും ഡ്രൈ റൺ നടത്തും കോവിഡ് വാക്സിന്റെ പഴുതുകളടച്ച വിതരണം സുഗമമാക്കുകയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യം

ഒരു കോടിയോളം ആരോഗ്യപ്രവർത്തുകരെയും രണ്ട് കോടിയോളം മുഖ്യധാര ജീവനക്കാരെയ്യു് കോടിയോളം മുതിർന്ന പൌരൻമാരെയും പ്രതിരോധ്യൂ മ്രുന്ന് നൽകുന്നതിനായി നേരത്തെ ദേശീയ വിദഗ്ധ സമീതി ് ശുപാർശ ചെയ്തിരുന്നു

തിരുവനന്തപുരത്ത് മൂന്ന് ആശുപത്രികളിലും മറ്റ് ജില്ലകളിൽ ഓരോ ആശുപത്രികളിലുമാണ് ഡ്രൈറൺ നടത്താൻ തീരുമാനമായത് നേരത്തെ നാല് സംസ്ഥാനങ്ങളിൽ രണ്ട് ദിവസത്തെ ഡ്രൈറൺ വിജയകരമായി സംഘടിപ്പിച്ചിരുന്നു

രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാർ സ്ഥാനത്ത്

പസഫിക് സമുദ്രത്തിലെ സമാവോ കിരിബാത്തി ദ്വീപുകൾക്കു പിന്നാലെ ന്യൂസിലാന്റിലും ഓസ്ട്രേലിയയിലും പുതുവർഷമെത്തി ന്യൂസിലാന്റിലെ ഹാഗ്ലേ പാർക്കിൽ വെടിക്കോപ്പുകൾ പൊട്ടിച്ച് ജനം പുതുവർഷം ആഘോഷിച്ചു ഓസ്ട്രേലിയയിലെ സിഡ്നി ഒപ്പേറ ഹൌസിലും ഹാർബർ ബ്രിഡ്ജിലും വെടിക്കെട്ട് ആർപ്പുവിളികളോടെയായിരുന്നു ആഘോഷം തായ്വാൻ തായ്ലാന്റ് എന്നിവിടങ്ങളിലും അത്യുത്സാഹപൂർവ്വമാണ് ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റത്

അഞ്ചു കോടി രൂപ വരെ വിറ്റുവരവുളള ചരക്കു സേവന നികുതി ദായകർക്ക് മൂന്നു മാസം കൂടുമ്പോൾ റിട്ടേൺ നൽകി പ്രതിമാസം നികുതി അടയ്ക്കാൻ പറ്റുന്ന തരത്തിലുളള കാർട്ടർലി റിട്ടേൺ പദ്ധതിക്കും ഇന്നു തുടക്കമാകും

നാലരവർഷം നീണ്ട ബ്രെക്സിറ്റ് ചർച്ചകൾക്കും വോട്ടെടുപ്പുകൾക്കും ശേഷമാണ് നടപടി ബ്രിട്ടീഷ് പാർലമെൻറിലെ ഇരുസഭകളും ചേർന്ന് പാസാക്കിയ ബ്രെക്സിറ്റ് ബില്ലിന് ബുധനാഴ്ച എലിസബത്ത് രാജ്ഞിയും അനുമതി നൽകിയിരുന്നു

വ്യാപാര കാര്യങ്ങൾക്കായി ബ്രിട്ടനും യൂറോപ്പും കരാറുണ്ടാക്കിയിട്ടുണ്ട്

നേരത്തെ ഇന്ന് മുതൽ ഫാസ്ടാഗ് നിർബന്ധിമാക്കാനായിരുന്നു തീരുമാനം

പശ്ചിമ ഹിമാലയ മേഖലയിൽ വരും ദിവസങ്ങളിൽ ശൈത്യം കൂടുതൽ കഠിനമാകുമെന്ന് കേന്ദ്ര കലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനിടെ ഡൽഹിയിൽ വായു ഗുണനിലവാരം വീണ്ടും താഴ്ന്നു